എറണാകുളം മെഡിക്കൽ കോളജിൽ ചികിത്സയിൽ കഴിയുന്ന മൂന്ന് വയസുള്ള കുട്ടിയുടെ മാതാപിതാക്കൾക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പിന്റെ മന്ത്രി കെ

ഇറ്റലിയിൽ നിന്നും വന്ന് രോഗം സ്ഥിരീകരിച്ച മൂന്ന് പേരുമായി സമ്പർക്കത്തിലേർപ്പെട്ട കുറേ പേർക്ക് രോഗപകർച്ച ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് റാന്നിയിലെ കുടുംബം ഇതുവരേയും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പറഞ്ഞിട്ടില്ലെന്നും വിവരങ്ങൾ ലഭ്യമാക്കാൻ സിസിടിവി ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു

തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളജുകളിൽ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒൻപത് പരിശോധനകൾ നടത്തി അവയെല്ലാം നെഗറ്റീവാണ്

കോളേജിലും രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററിലും പരിശോധിക്കാനുള്ള അനുമതി ചോദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

ജില്ലാ കലക്ടർമാരുമായി വീഡിയോ കോൺഫറൻസ് മുഖേന സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പൊതുസ്ഥലങ്ങളിലെല്ലാം സാനിറ്റൈസർ വയ്ക്കണമെന്നും ഓഫീസുകളിലും സാനിറ്റൈസറുകൾ ഉപയോഗിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ദേദ കൊറോണ വൈറസ് വ്യാപനം തടയാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ രംഗത്തിറങ്ങാൻ മുഴുവൻ മെഡിക്കൽ വിദ്യാർത്ഥികളോടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു രോഗവ്യാപനം തടയാനും വൈറസ് ബാധിച്ചവരെയും നിരീക്ഷണത്തിലുള്ളവരെയും ശുശ്രൂഷിക്കാനും വൈദ്യശാസ്ത്രം പഠിക്കുന്ന തലമുറയും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരും മറ്റെല്ലാം മാറ്റിവെച്ച് രംഗത്തിറങ്ങേണ്ടതുണ്ട് കൂട്ടായ ഇടപെടലിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മെഡിക്കൽ രംഗത്തെ സ്ഥാപനങ്ങൾക്ക് അവധിയില്ല

ദേദ കൊറോണ ബാധിതരെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകളിലും ഐസൊലേഷൻ വാർഡുകളിലും വൈദ്യുതി തടസ്സം ഉണ്ടാകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രി എം

തിരുവനന്തപുരത്ത് വൈദ്യുതി ബോർഡിലെ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് മന്ത്രിയുടെ നിർദേശം ഐസൊലേഷൻ വാർഡായി മാറ്റുന്ന കെട്ടിടങ്ങളിൽ വൈദ്യുത ബന്ധം ഇല്ലായെങ്കിൽ മറ്റു നടപടിക്രമങ്ങൾ കൂടാതെ തന്നെ ഉടൻ വൈദ്യുതി കണക്ഷൻ നൽകാനും യോഗം തീരുമാനിച്ചു രുമ കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ കഴിയുന്ന നാലു പേർക്ക് കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ജാഗ്രത ഏർപ്പെടുത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ജില്ല പൂർണ സജ്ജമാണെന്ന് കലക്ടർ പി

ഇറ്റലിയിൽ നിന്ന് നേരിട്ടെത്തിയ നാലു പേരിൽ പരിശോധന ഫലം ലഭിച്ച ഒരാളുടേത് നെഗറ്റീവാണ് മറ്റു മൂന്നു പേരുടേയും ഫലം രണ്ടു ദിവസത്തിനകം ലഭിക്കും നിലവിൽ ഡൽഹിയിൽ നിന്നെത്തിയ ഒരു ഉത്തരേന്ത്യക്കാരൻ ഇടുക്കി മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിൽ കഴിയുന്നുണ്ട് ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്

അന്താരാഷ്ട്ര ടെർമിനലിൽ യൂണിവേഴ്സൽ സ്ക്രീനിംഗിന് പുറമേ യാത്രക്കാർ അവരുടെ യാത്രാ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതും നിർബന്ധമാക്കി അന്താരാഷ്ട്ര വിമാനത്താവള ടെർമിനലിൽ അഞ്ച് സഹായകേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗം സ്ഥിരീകരിച്ച മൂന്ന് വയസ്സുകാരിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും കലക്ടർ പറഞ്ഞു

വീട്ടിലെ മറ്റ് കുടുംബാംഗങ്ങളുമായുള്ള സമ്പർക്കം കർശനമായി ഒഴിവാക്കി വായു സഞ്ചാരമുള്ള മുറിയിൽ കഴിയണം പാത്രങ്ങൾ കപ്പ് ബെഡ്ഷീറ്റ് തുടങ്ങിയവ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്

പനി ചുമ ശ്വാസതടസം എന്നീ രോഗലക്ഷണം പ്രകടമാകുന്നവർ ഐസൊലേഷൻ സൌകര്യമേർപ്പെടുത്തിയ ആശുപത്രിയിൽ അറിയിച്ച് പ്രത്യേകം വാഹനത്തിൽ എത്തണമെന്നും മന്ത്രി പറഞ്ഞു

ഇത്തരത്തിൽ പരാതി ലഭിച്ചാൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി

ദേഴ ഐ ലീഗ് ഫുട്ബോളിൽ മോഹൻബഗാൻ ചാമ്പ്യൻമാരായി കൊൽക്കത്തയിൽ നടന്ന ഫൈനലിൽ ഐസോൾ എഫ്സിയെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് മോഹൻബഗാൻ തോൽപ്പിച്ചത്

രോഗബാധിത പ്രദേശത്ത് നിന്നും ഒളിച്ച് കടത്തിയ പക്ഷികളെ ഇന്ന് ദ്രുതകർമ്മസേന ഏറ്റെടുത്ത് നശിപ്പിക്കും രുര കൊറോണ ജാഗ്രതാ നിർദേശങ്ങളുടെ സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ സാമുദായിക രാഷ്ട്രീയ നേതാക്കളുടെ യോഗം ഇന്ന് രാവിലെ ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേരും ജില്ലയിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മത സാമുദായിക നേതാക്കൾ മലബാർ ബോർഡ് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ ദേവസ്വം സംബന്ധിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ദ്ദേ ഗുരുവായൂർ ക്ഷേത്രോത്സവം ആചാരങ്ങളും ചടങ്ങുകളും മാത്രമായി നടത്തുമെന്ന് ദേവസ്വം ചെയർമാൻ കെ

പ്രസാദ ഊട്ട് പകർച്ച കലാപരിപാടികൾ എന്നിവ റദ്ദാക്കി രുമ ഇന്ന് കോഴിക്കോട് ചേരാനിരുന്ന വഖഫ് ബോർഡ് ജുഡീഷ്യൽ സിറ്റിംഗ് മാറ്റിവെച്ചതായി ഡിവിഷണൽ ഓഫീസർ അറിയിച്ചു ഇന്നു നടത്താനിരുന്ന ജല അതോറിറ്റി ജില്ലാ റവന്യൂ അദാലത്തും പി

കൂടിക്കാഴ്ച്ചയും മാറ്റിവെച്ചിട്ടുണ്ട്

ദേദ കുട്ടനാട് പാക്കേജിൽ നിർദേശിച്ച പദ്ധതികളുടെ പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കാനും സമയബന്ധിതമായി പൂർത്തിയാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതലയോഗം തീരുമാനിച്ചു കാർഷിക മേഖലയിലെ വളർച്ചയും കർഷകരുടെ വരുമാനവും വർദ്ധിപ്പിക്കുക വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക പ്രദേശവാസികളെ സുരക്ഷിതമായി ജീവിക്കാൻ പ്രാപ്തരാക്കുക വേമ്പനാട് കായൽ വ്യവസ്ഥയെ പാരിസ്ഥിതിക ആഘാതങ്ങൾ താങ്ങാൻ കഴിയുന്ന സ്ഥിതിയിലാക്കുക എന്നിവ ലക്ഷ്യം വെച്ചാണ് പാക്കേജ് നടപ്പാക്കുന്നത് രുര ശബരി റെയിൽപാത നിർമ്മാണ ചെലവിന്റെ പകുതി സംസ്ഥാന ഗവൺമെന്റ് വഹിക്കുന്ന കാര്യം പരിശോധിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ദേദ മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലെ പരിസ്ഥിതി സചേതന മേഖലയിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്ന് എം

ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോടും എംപി നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു ദേഴ ചാർജ് വർധന ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു സംസ്ഥാനത്ത് ഇന്ന് മുതൽ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം മാറ്റിവെച്ചതായി ബസ്സുടമ സംയുക്ത സമരസമിതി തിരുവനന്തപുരത്ത് അറിയിച്ചു മന്ത്രി എ

ശശീന്ദ്രന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് തീരുമാനം രാമ ജനങ്ങൾക്കു വേണ്ട വിവരങ്ങൾ പരമാവധി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വേണം വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന അപേക്ഷകൾ കൈകാര്യം ചെയ്യാനെന്ന് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസൻ

ദേഴ തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ എസ്ഐ വിമലിനെ കുത്തിയ കേസിലെ പ്രതി കൊല്ലത്ത് പിടിയിലായി